ത അടച്ചുപൂട്ടലിൽ ഇളവ് അനുവദിക്കുന്ന ജില്ലകളിൽ തിങ്കളാഴ്ച മുതൽ ഒറ്റയക്ക ഇരട്ടയക്ക നമ്പർ വാഹനമോടിക്കാൻ സൌകര്യമൊരുക്കും

ത സംസ്ഥാനത്ത് കുട്ടികളുടെ രോഗപ്രതിരോധ പരിപാടി അടുത്ത ബുധനാഴ്ച പുനരാരംഭിക്കും വാർത്തകൾ വിശദമായി സംസ്ഥാനത്തെ നാല് മേഖലകളായി തിരിച്ച് ലോക്ഡൌൺ ക്രമീകരണങ്ങളും ഇളവുകളും നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു സംസ്ഥാന അതിർത്തികൾ അടച്ചിട്ട നടപടിയും അന്തർജില്ലാ യാത്രാ നിരോധനവും തുടരും ഇത്തരം മേഖലാ വിഭജനത്തിന് കേന്ദ്രത്തിന്റെ അനുമതി തേടുമെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു കാസർകോട് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം എന്നീ ജില്ലകളെ ആദ്യ മേഖലയിൽ ഉൾപ്പെടുത്തി മെയ് മൂന്നുവരെ ലോക്ക്ഡൌൺ കർശനമായി നടപ്പാക്കും കോവിഡ് പോസിറ്റീവായ ആളുകളുടെ എണ്ണം പരിഗണിച്ചാണ് ഈ നടപടി ഈ ജില്ലകളിലെ തീവ്ര രോഗബാധാ ഹോട്ട്സ്പോട്ടുകൾ പ്രത്യേകമായി കണ്ടെത്തും അത്തരം വില്ലേജുകളുടെ അതിർത്തി അടച്ചിടും ഭക്ഷ്യ സാധനങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവരാനും തിരിച്ചുപോകാനും ഓരോ പോയിന്റുകൾ മാത്രം തുറന്നുകൊടുക്കും

ഹോട്ട്സ്പോട്ടായ പ്രത്യേക പ്രദേശങ്ങൾ കണ്ടെത്തി പൂർണ്ണമായി അടച്ചിടും

ആലപ്പുഴ തിരുവനന്തപുരം പാലക്കാട് തൃശൂർ വയനാട് ജില്ലകളെ ഉൾപ്പെടുത്തിയായിരിക്കും മൂന്നാം മേഖല

എന്നാൽ സിനിമാ ഹാളുകൾ ആരാധനാലയങ്ങൾ എന്നിവ അടഞ്ഞു തന്നെ കിടക്കണം ജില്ലാ അതിർത്തിയിൽ സുരക്ഷാ ക്രമീകരണത്തോടെ പൊതു വാഹന സൌകര്യം അനുവദിക്കും കടകളും റസ്റ്ററന്റുകളും വൈകിട്ട് ഏഴുവരെ തുറക്കാൻ അനുവദിക്കും കൊറോണ പോസിറ്റീവ് കേസുകളില്ലാത്ത കോട്ടയം ഇടുക്കി ജില്ലകളാണ് നാലാമത്തെ മേഖല എന്നാൽ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയെന്ന നിലയ്ക്ക് ഇടുക്കിയിൽ കൂടുതൽ ജാഗ്രത പുലർത്തും ഇവിടെയും അന്തർജില്ലാ യാത്ര അനുവദിക്കില്ല

എല്ലായിടങ്ങളിലും സാനിറ്റൈസറും കൈകഴുകൽ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കണം രുമ കോവിഡ് പ്രതിരോധ നടപടികൾ വിജയിപ്പിക്കുന്നതിന് ഓരോ ജില്ലയ്ക്കും പ്രത്യേക രോഗ പ്രതിരോധ പ്ലാൻ ഉണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു ചില പഞ്ചായത്തുകളും നഗരസഭകളും ഹോട്ട്സ്പോട്ട് മേഖലയിൽ വരുന്നതുകൊണ്ടാണ് പ്രത്യേക പ്ലാനിംഗ് ആവശ്യമാകുന്നത്

സ്ത്രീകൾ ഓടിക്കുന്ന വാഹനങ്ങൾക്ക് ഇളവുകൾ ഉണ്ടാകും അതിഥി തൊഴിലാളികൾക്കും സാമൂഹ്യ അടുക്കളയ്ക്കും ഭക്ഷ്യ സാധനങ്ങൾ ലഭ്യമാകുന്നുവെന്ന് സിവിൽ സപ്ലൈസ് ഉറപ്പാക്കണം വിദേശത്ത് അവശ്യ മരുന്നുകൾ വേണ്ടവർ നോർക്കയുമായി ബന്ധപ്പെട്ടാൽ ആവശ്യമായ നടപടിയുണ്ടാവും കാലവർഷത്തിന് മുന്നോടിയായി ഓടും ഓലയും മേഞ്ഞ വീടുകൾക്ക് അറ്റകുറ്റപ്പണിക്ക് അനുമതി നൽകും

കണ്ണൂർ ജില്ലയിൽ നാല് പേർക്കും കോഴിക്കോട്ട് രണ്ട് പേർക്കും കാസർകോട്ട് ഒരാൾക്കുമാണ് രോഗബാധയുണ്ടായത്

വീടുകളിലോ ആശുപത്രികളിലോ പുതുതായി ആരെയും നിരീക്ഷണത്തിലാക്കിയിട്ടില്ല കോവിഡ് മുക്തമായ ഇടുക്കി ജില്ലയിൽ ഇനി രോഗികൾ ഉണ്ടാവാതിരിക്കാൻ ജാഗ്രതാ നടപടികൾ ഊർജ്ജിതമായി തുടരുകയാണ് രോഗബാധിതരായ പത്തുപേരാണ് ജില്ലയിൽ ഉണ്ടായിരുന്നത്

തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽപ്പെട്ട ബോഡി നായ്ക്കന്നൂർ മേഖലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധനകൾ ശക്തമായി തുടരുന്നത്

വോയിസ് കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞമാസം വിദേശത്ത് നിന്ന് എത്തിയയാൾക്കും മാതാവിനുമാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത്

ജഗന്നിവാസൻ

കുട്ടികൾക്കോ അമ്മമാർക്കോ ആരോഗ്യ പ്രവർത്തകർക്കോ രോഗപ്പകർച്ച ഉണ്ടാവാതെ മുൻകരുതലെടുത്തുവേണം രോഗപ്രതിരോധ നടപടികൾ നടത്തേണ്ടത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളിലും അടുത്ത ബുധനാഴ്ച മുതൽ വാക്സിനേഷൻ തുടങ്ങും പ്രതിരോധ വാക്സിനുകൾ എടുക്കാത്ത കുട്ടികളുടെ എണ്ണം കൂടിയ സ്ഥലങ്ങളിൽ വാക്സിനേഷന്റെ സമയവും ദിവസവും കൂട്ടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കുട്ടിയെ കൊണ്ടുവരുന്ന അമ്മയും വാക്സിൻ നൽകുന്ന ആരോഗ്യ പ്രവർത്തകരും മൂന്നുപാളിയോടുകൂടിയ മാസ്ക്കും ഗ്ലൌസും ഉപയോഗിച്ചിരിക്കണം ദേദ ആലപ്പുഴ ജില്ലയിൽ പഞ്ചായത്തുകൾ ഭക്ഷണവിതരണം നിർത്തിയത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ മന്ത്രി ജി സുധാകരൻ നിർദ്ദേശം നൽകി

ഇത് വേദനാജനകവും മനുഷ്യത്വരഹിതവുമാണെന്നും മന്ത്രി പറഞ്ഞു